എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ചെന്നൈയിൻ എഫ് സി മത്സരം

തോമസ് ഐസക് കിഫ്ബി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന കാര്യം സംസ്ഥാന സർക്കാർ ആലോചിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി ടി എം തോമസ് ഐസക് നിയമസഭയെ അറിയിച്ചു

കണക്കാക്കിയാണ് കിഫ്ബി പദ്ധതികൾ ഏറ്റെടുക്കുന്നതെന്നും നഷ്ട സാധ്യതയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാറില്ലെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു

സന്നിധാനത്ത് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തുടർ